വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ

ബിഹാറിൽ സർക്കാർ രൂപീകരണത്തിനായി എൻ

എൽ

വിലയ്ക്ക് മറ്റ് രാജൃങ്ങൾക്കും ലഭ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ

ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറക്കും

പാകിസ്ഥാൻ ഹൈക്കമ്മീഷനെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം രേഖപ്പെടുത്തി ജമ്മുകശ്മീരിൽ വെള്ളിയാഴ്ച നടന്ന വെടിനനിർത്തൽ കരാർ ലംഘനമാണ് ഇന്തൃയുടെ പ്രതിഷേധത്തിന് കാർണം

സമാധാന്ട് കൃത്കർക്കാൻ ഉത്സവകാലം തന്നെ തെരെഞ്ഞെടുത്ത് ആക്രിമ്ണം നടത്തുന്ന പാകിസ്ഥാന്റെ രീതി തികച്ചും ദൌർഭാഗ്യിക്ട്രമാണ് അതിർത്തി കടന്നുള്ള തീവ്രവാദം ഒരു രീതിയിലും അംഗീകരിക്കാനാവില്ലെന്നും ഇന്ത്യ ഓർമിപ്പിച്ചു

സാഹിത്യത്തിലും വിദ്യാഭ്യാസ മേഖലയിലും സമൂഹത്തിലെ തിൻമയ്ക്കുമെതിരെയും നിരന്തരം പ്രയത്നിച്ച വൃക്തിത്വമായിരുന്നു സൂരിശ്വർജി

എ എം എൽ

ഡി എ സഖ്യത്തിന്റെ ഭാഗമായ ബി ജെ പി ജെ

യു ഹിന്ദുസ്ഥാനി അവാം മോർച്ച വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എം എൽ

എ ് യോഗത്തിന് മുന്നോടിയായി സഖ്യത്തിലെ രാഷ്ട്രീയ ് പാർട്ടികൾ പ്രത്യേകം യോഗം ചേരുന്നുണ്ട്

ജെ പി വിജയിച്ചത്

അടച്ചിടൽ വേളയിലാണ് പാൽ കൈമാറ്റത്തിനായി ദൂത്ത് ദൂരന്തോ ട്രെയിൻ സർവ്വീസ് തുടങ്ങിയത് അതിന് മുമ്പ് സാധാരണ മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിൽ പ്രത്യേക ടാങ്കറുകൾ ഘടിപ്പിച്ചാണ് ആന്ധ്രയിൽ നിന്നും ഡൽഹിയിലേക്ക് പാൽ എത്തിച്ചിരുന്നത്

ആരാധനാല യങ്ങൾ സന്ദർശിക്കു മ്പോൾ മുഖാവരണം ധരിക്കുന്നത് നിർബന്ധമാക്കി

ഖേലോ ഇന്തൃ പദ്ധതിവഴി നാലുവർഷത്തേക്ക് രാജ്യത്തെ അഞ്ഞൂറ് സ്വകാര്യ കായിക കേന്ദ്രങ്ങളെ സഹായിക്കാനാണ് ശ്രമം പരിശീലനം നേടുന്ന കായികതാരങ്ങളുടെ നിലവാരം അടിസ്ഥാനസൌകര്യം പരിശീലകരുടെ നിലവാരം തുടങ്ങിയവ വിലയിരുത്തിയാണ് ധനസഹായത്തിനായി തെരഞ്ഞെടുക്കു ന്നത് രാജ്യത്തിന്റെ എല്ലാ കോണിൽ നിന്നുമുള്ള കായികതാരങ്ങളെ പരിപോഷിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതിയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു

നിയുക്ത അമരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വൈസ്പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻവംശജ കമല ഹാരിസ് എന്നിവർ ട്വിറ്ററിലൂടെ ദീപാവലി ആശംസകൾ നേർന്നു സ്ഥാനമൊഴിയുന്ന യുഎസ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപും ടിറ്ററിലൂടെ ദീപാവലി ആശംസ നേർന്നു

ജയശങ്കർ

തന്ത്രപ്രധാന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കിഴക്കൻ ഏഷ്യ ഉച്ചകോടിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം ആവർത്തിച്ചു

സർക്കാർ സ്വകാര്യ മേഖലകളിലുള്ള അലോപതി ആയുർവേദം ഹോമിയോ ഡെന്റൽ തുടങ്ങി എല്ലാ ചികിത്സാ വിഭാഗങ്ങളിലെയും ഓഫീസ് എല്ലാവരുടെയും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് കൂടാതെ അങ്കണവാടി പ്രവർത്തകർ ഐസിഡിഎസ് സൂപ്പർ വൈസർമാർ ആശാ വർക്കർമാർ ആരോഗ്യവളന്റിയർമാർ എന്നിവരുടെയും വിവരങ്ങൾ ഐസിഡിഎസ് പ്രോജക്ടുകൾ വഴിയും ശേഖരിക്കുന്നു

ഇല്ലാത്തവർക്ക് പരിശോധന നടത്താൻ സൌകര്യമുണ്ട് പമ്പയിൽ കുളിക്കാൻ അനുവദിക്കില്ല

സന്നിധാനം നിലയ്ക്കൽ ബേസ് കൃാമ്പ് പമ്പ എന്നിവിടങ്ങളിൽ സാനിറ്റൈസിങ് കിയോസ്കുണ്ട് റോഡുകളുടെ നിർമാണം പൂർത്തിയായി

ഹക്കാനി ഗ്രൂപ്പുമായി ബന്ധമുള്ള മുഹമ്മദ് അബ്ദേൾ എന്ന ആളാണ് പിടിയിലായതെന്ന് അഫ്ഗാൻ സേന അറിയിച്ചു

കൊടുങ്കാറ്റിനോ ടൊപ്പമുണ്ടായ മണ്ണിടിച്ചിലുക്ക് പേമാരിയും ദുരന്തത്തിന്റെ ആക്കം കൂട്ടി

നാല് ലക്ഷത്തോളം പ്പേർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയാതായി ഫിലീപ്പീൻസ് ദുരന്ത നിവാരണ വകുപ്പ് അറിയിച്ചു

കുട്ടികളുടെ അവകാശത്തിനായുള്ള അന്താരാഷ്ട്ര സംഘടന കിഡ്സ്റൈറ്റ് സാണ്അവാർഡ് നൽകുന്നത്

ജില്ലകളിൽ ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്